നേരിട്ടുള്ള വിദേശ നിക്ഷേപ്പ നിയമങ്ങളിൽ കേന്ദ്ര സർക്കാർ മാറ്റം വരുത്തി

കൃതൃമായ നടപടികളിലൂടെ കോവിഡ് വ്യാപനം പിടിച്ചു നിർത്താൻ ഇന്ത്യയ്ക്ക് സാധിച്ചതായി കേന്ദ്ര ആരോഗൃ മന്ത്രി ഹർഷ് വർദ്ധൻ

ഇന്തൃയിൽ ആണെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ

ഹരിയാനയിലെ അംബാല വ്യോമതാവളത്തിൽ നടക്കുന്ന ചടങ്ങിൽ വച്ച് ഈ വിമാനങ്ങൾ ഔദ്യോഗികമായി ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകും

പത്ത് വിമാനങ്ങളുടെ കൈമാറ്റ പ്രക്രിയ പൂർത്തിയായെങ്കിലും അഞ്ച് എണ്ണം പരിശീലനത്തിനായി ഫ്രാൻസിൽ തന്നെ തുടരുമെന്ന് ഫ്രാൻസിലെ ഇന്ത്യൻ എംബസി പ്രസ്താവനയിൽ അറിയിച്ചു

എയർ ഇന്ത്യയുടെ ഓഹരി വിറ്റഴിക്കലിനുള്ള അവസാന തീയതി കഴിഞ്ഞ മാസം മൂന്നാം തവണയും നീട്ടിയിരുന്നു

പ്രതിദിന കോവിഡ് പരിശോധനകളുടെ എണ്ണം അഞ്ച് ലക്ഷത്തിലധികമായതായി ഐ സി എം ആർ

ലോക ഹെപ്പറ്റൈറ്റിസ് ദിനത്തോടനുബന്ധിച്ച് നടന്ന ഇ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിശദാംശങ്ങളുമായി ലക്ഷ്മിശ്രീവിജയ

പ്രമേഹം അമിതവുണ്ണിട്ട്ക്രൾവീക്കം മറ്റ് കരൾ രോഗങ്ങൾ എന്നിവ ഉള്ളവൂരിലാണ് കോവിഡ് മരണം കൂടുതലായി കാണുന്നത് എന്നും അദ്ദേഹം അറിയിച്ചു കോവിഡ് കാലത്ത് ക്രൂർ സുരക്ഷിതമാക്കുക എന്നതാണ് ലോക ഹെപ്പറ്റൈറ്റി്സ് ദിനത്തോടനുബന്ധിച്ചു നടന്ന സമ്മേളനത്തിന്റെ പ്രമേയം ഹെപ്പറ്റൈറ്റിസ് ഒരു ആഗോള ആരോഗ്യ പ്രശ്നമായി മാറിയിരിക്കുകയാണ് എന്നും വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്നത് ഇന്ത്യയിൽ വളരെ സാധാരണവും മാരകവുമായ രോഗമായി മാറിയിരിക്കുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു ഹെപ്പറ്റൈറ്റിസ് ബി സി എന്നിവ ഉള്ളവരിൽ കരളിനെ ബാധിക്കുന്ന ക്യാൻസർ മറ്റു മാരക അസുഖങ്ങൾ എന്നിവ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു ലോക്സഭാ സ്പീക്കർ ഓം ബിർല കേന്ദ്ര നിയമമന്ത്രി രവിശങ്കർ പ്രസാദ് എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ആകാശവാണി

രോഗലക്ഷണങ്ങൾ ഇല്ലാത്തവരിലെ രോഗ സാധൃത സ്മാർട്ട്ഫോൺ സെൻസറുകളുടെ സഹായത്തോട്ടെ തിരിച്ചറിയുകയാണ് ഇൌ മൊബൈൽ ആപ്തിക്കേഷൻ ചെയ്യുന്നത് കോവിഡ് കവച് സംരംഭത്തിന്റെ ഭാഗമായാണ് ലിഫാസ് കോവിഡ് സ്കോർ എന്ന ഈ ആപ് വികസിപ്പിച്ചത്

ഡൽഹിയിലും മുംബൈയിലും കൊൽക്കത്തയിലും കൂടുതൽ സൌകര്യങ്ങൾ ഏർപ്പെടുത്തിയത് കോവിഡ് പരിശോധന വർദ്ധിപ്പിക്കാൻ സഹായകമായതായി അവർ ട്യീറ്റ് ചെയ്തു

രോഗബാധിതരുടെ എണ്ണത്തിൽ മൂന്നാം സ്ഥാനത്താണ് ഇന്ത്യ

ഭക്ഷണവും വെള്ളവും തേടി വന്യമൃഗങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്നത് തടയാനും വന്യമൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷങ്ങൾ ഒഴിവാക്കാനും ഇതിലൂടെ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ശ്രീ

സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോണിൽ വീഡിയോ കോൺഫറൻസ് വഴിയാകും ശ്രീ

ആത്മ നിർഭർ ഭാരത് അഭിയാന്റെ ഭാഗമായ മാറ്റങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്

കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം മുംബൈയിലും ഹൈദരാബാദിലും ഒമ്പത് ഇടങ്ങളിലാണ് തിരച്ചിൽ നടന്നത് പൊതു സ്വകാര്യ പങ്കാളിത്തതോടെ പ്രവർത്തിക്കുന്ന മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഫണ്ടിൽ നിന്ന് ജി വി കെ ഗ്രൂപ്പ് വകമാറ്റി ചെലവാക്കിയ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറ്റ്കൂറ്റേറ്റും സി ബി ഐയും അന്വേഷണം നടത്തുകയാണ്

റോഡുകൾ തകർന്നത് പ്രദേശത്തെ വാഹനഗതാഗതത്തെ ബാധിച്ചിട്ടുണ്ട്

താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലൂയി

നോർത്ത് കാലിഫോർണിയയിലെ കോവിഡ് പ്രതിരോധ മരുന്ന് നിർമാണ കേന്ദ്രം സന്ദർശിക്കുകയായിരുന്നു അദ്ദേഹം നോവാവാക്സ് എന്ന പ്രതിരോധ മരുന്ന് വലിയ തോതിൽ നിർമിക്കുന്ന കേന്ദ്രമാണ് അദ്ദേഹം സന്ദർശിച്ചത്